ജയശങ്കർ

സഭയിലെത്താൻ കൂടുതൽ സാവകാശം വേണമെന്ന് വിമത എം എൽ എമ്മാർ

വടക്കൻ കേരളത്തിലും മഴ

പ്രധാനമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം ഇരുസഭകളിലും ബഹളം വച്ചു എന്നാൽ പ്രശ്നപരിഹാരത്തിന് സഹായം വാഗ്ദാനം ചെയ്യുക മാത്രമാണ് ചെയ്തതെന്ന് അമേരിക്ക വിശദീകരണം നൽകി കൂടുതൽ വിവരങ്ങളുമായി പ്രിയ ഹോൾഡ് വോയിസ് കാശ്മീർ വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എസ് പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപിനോട് ഒരു സഹായവും തേടിയിട്ടില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പാകിസ്ഥാനുമായുള്ള എല്ലാ പ്രശ്നങ്ങളും ഇരുരാജ്യങ്ങളും ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് പരിഹരിക്കേണ്ടത്ത്ത്നു് അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു കാശ്മീർ വിഷയത്തിൽ ഉദ്യ്യസ്ഥത വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയുട്ടെ ്സഹായം തേടിയെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രിശദീഖരണം നൽകുകയായിരുന്നു അദ്ദേഹം എന്നാൽ ിയ്ക്ക് എസ് പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ വിശദീകരണം നൽകണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം

കാശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ നേരത്തെ വൃക്തമാക്കിയിട്ടുണ്ട്

പാകിസ്ഥാനുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്നതാണ് ഇന്ത്യയുടെ സുസ്ഥിരമായ നിലപാട്

ഇതിനായി പാകിസ്ഥാൻ അതിർത്തിക്കപ്പുറത്തു നിന്നുള്ള ഭീകരവാദത്തിന് അന്ത്യംകുറിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ട്രടംപിന്റെ വിശദീകരണത്തിന് ഇതേസമയം കൂടൂതൽ വിശദീകരണവുമായി അമേരിക്ക രംഗത്തെത്തി വിഷയത്തിൽ മധ്യസ്ഥനാവുന്നതിൽ തനിക്ക് സന്തോഷമേ ഉള്ളുവെന്നാണ് ട്രംപ് പറഞ്ഞതെന്ന് യു എസ് വിശദീകരിച്ചു

പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനുമായി വാഷിംഗ്ടണിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയിലാണ് ട്രംപ് ഇക്കാരൃം അറിയിച്ചത്

എന്നാൽ പാകിസ്ഥാന് പാകിസ്ഥാന്റെ പ്രവർത്തനങ്ങൾ അമേരിക്കയ്ക്ക് വിരുദ്ധമാണെന്ന വിലയിരുത്തലാണ് വൈറ്റ്ഹൌസിനുള്ളത്

അതേസമയം മുംബൈയിലുള്ള വിമത എം എൽ എമാർ സഭയിലെത്താൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു

വോട്ടെടുപ്പ് എത്രയും വേഗം നടത്തണമെന്ന ഗവർണറുടെ നിർദ്ദേശവും നേരത്തെ സഭ തള്ളി

ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ആരോഗ്യമേഖലയുടെ വികസനത്തിന് ഒട്ടേറെ പ്രധാനപ്പെട്ട നടപടികൾ കൈക്കൊണ്ടു

നടപ്പ് പാർലമെന്റ് സമ്മേളനത്തിൽ ഇന്ത്യൻ കൌൺസിൽ ഭേദഗതി ബിൽ പാസാക്കി രാജ്യത്തെ മെഡിക്കൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഗുണമേന്മയും വിശ്വാസ്യതയും സുതാര്യതയും ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കും

ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് വകുപ്പുകളോട് കഴിയുന്നത്ര വിവരം ലഭ്യമാക്കി വിവരാവകാശ അപേക്ഷകളുടെ എണ്ണം കുറയ്ക്കാൻ ഗവൺമെന്റ് സ്വമേധയാ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ശ്രീ ജാവ്ദേക്കർ ട്വിറ്ററിൽ അറിയിച്ചു

രാജ്യത്തിന്റെ സ്വാതന്ത്രൃത്തിന് വേണ്ടി ജീവത്യാഗം വരിച്ച ധീരനായ നേതാവായിരുന്നു ആസാദെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു അദ്ദേഹത്തിന്റെ ധീരമായ നിലപാടുകൾ രാജ്യത്തെ ഓരോ പൌരനും പ്രചോദനമായെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു പൂർണ സ്വരാജിന് വേണ്ടി ജീവിതം ബലി അർപ്പിച്ച സ്വതന്ത്ര്യ സമര സേനാനിയായിരുന്നു തിലക് എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു

കാസർകോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിലും കുട്ടനാട് താലൂക്കിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂരിലും കാസർകോട്ടും ഓറഞ്ച് അലർട്ടുണ്ട് പൊഴിയൂർ മുതൽ കാസർകോട് വരെ കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കൻ കേരളത്തിൽ ഇന്നും കനത്ത മഴ പ്രവചിച്ചിരിക്കുന്നതിനാൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകി

മന്ത്രി ദാരാസിംഗ് ചൌഹാൻ മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അടിയന്തര സഹായം വിതരണം ജില്ലയിൽ ഇടിമിന്നലേറ്റ് ഏഴ് ചെയ്തു

പുനഃരധിവാസ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ പുരോഗമിക്കുകയാണ് നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വീടുകളുടെയും കണക്കെടുപ്പും നടന്നുവരികയാണെന്ന് ഡപ്യൂട്ടി കമ്മിഷണർ ആദിൽ ഖാൻ പറഞ്ഞു

ഹോൾഡ് വോയിസ് ബോംബേ സ്റ്റേഷനിൽ നിന്നും സ്വകാര്യ കമ്പനിയായ ദ ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയിൽ നിന്നുമായിരുന്നു ആ ചരിത്രം പിറന്നത്

സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ ഇന്ത്യൻ ജനതയുടെ ജീവിതത്തിലെ പ്രധാന ഭാഗമായി റേഡിയോ മാറിയിരുന്നു ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന മുദ്രാവാക്യം സാർത്ഥകമാക്കിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് വിജ്ഞാനവും വിനോദവും പകർന്നു നൽകുക എന്ന സേവനം നടപ്പിലാക്കി വരികയാണ് ഓൾ ഇന്ത്യാ റേഡിയോ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പൊതു പ്രക്ഷേപണ സംഘടനകളിൽ ഒന്നാണ് ഓൾ ഇന്ത്യാ റേഡിയോ

ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ്

ഈസ്റ്റർ ദിനത്തിൽ നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് കൊലക്കുറ്റമുൾപ്പെടെ മറ്റ് നിരവധി കുറ്റങ്ങൾ അറ്റോർണി ജനറൽ ഈ ഉദ്യോഗസ്ഥർക്ക് മേൽ ചുമത്തിയിരുന്നു

ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടും ഉദ്യോഗസ്ഥരെ വീണ്ടും അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അറ്റോർണി ജനറൽ ഹർജി നൽകിയത്

നിർണായക രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ചിട്ടിക്കമ്പനിയുടെ ഉടമ പാർഥ ചക്രബർത്തിയെ നേരത്തെ സിബിഐ അറസ്റ്റ് ചെയ്തിരുന്നു

പരിപാടിയുടെ കഴിഞ്ഞ എപ്പിസോഡിൽ മൻ കി ബാത്തിന് ജനങ്ങൾ എഴുതിയ കത്തുകളെ കുറിച്ചാണ് ശ്രീ മോദി സംസാരിച്ചത് കത്തുകൾ തനിക്ക് പ്രചോദനവും ഊർജ്ജവും പകരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു

കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ

നിപ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തതോടെയാണ് പ്രഖ്യാപനം നിപയെ നേരിടുന്നതിൽ കേരളം കൂട്ടായ പ്രവർത്തനമാണ് കാഴ്ചവച്ചത് അതുവഴി മനുഷ്യരാശിയുടെ ഉത്തരവാദിത്തമാണ് നിർവ്വഹിച്ചതെന്നും മന്ത്രി പറഞ്ഞു